ൾ ൽ ൾ കർഷക ആത്മഹതൃകളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും ബാങ്കു കൾ വായ്പയെടുത്തവർക്കെതിരെ കാർഷിക നഷ്ടം കണക്കിലെടു ക്കാതെ ജപ്തി നടപടികൾ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം ഇടുക്കിയടക്കം ജില്ലകളിൽ കർഷക ആത്മഹത്യ കൾ പെരുകുന്ന സാഹചരൃവും യോഗം വിലയിരുത്തും ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുൾക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദേശം നൽകിയിട്ടുണ്ട് ബാങ്കുക ളുടെ ജപ്തി നോട്ടീസ് കണ്ട് ആശങ്കപ്പെടേണ്ടതിലെന്ന് മന്ത്രി വി

നാളെ തിരുവന്ന്തപുരത്ത് മുഖ്യ മന്ത്രി വിളിച്ച ബാങ്കേഴ്സ് സമിതി യോഗം ചേരും കർഷകരുടെ അഞ്ച് ലക്ഷം രൂപയുടെ വരെ വായ്പകൾ എഴു തിതള്ളണമെന്ന് പ്രതിപക്ഷ നേതാവ് ർമേശ് ചെന്നിത്തല ആവശ്യ പ്പെട്ടു കർഷകരുടെ കാർഷികേതൃ വായ്പകൾക്കും മൊറട്ടോറിയം കൊണ്ടുവരണമെന്നാണ് പ്രതിപക്ഷ ആവശൃം ഈ ആവശൃങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ ഇടുക്കി യിൽ ഉപവാസം നടത്തും വേനലും വരൾച്ചയും ഉഷ്ണതരംഗവും നേരിടുന്നതിന് സ്വീക രിക്കേണ്ട നടപടികളെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ജില്ലാകലക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും കോഴിക്കോട് അടക്കം വടക്കൻ ജില്ലകളിൽ ഇന്നുമുതൽ വ്യാഴാഴ്ച്ച വരെ ഉഷ്ണ തരംഗത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടു കളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാ രണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തൃശൂർ മുതൽ കണ്ണൂർ വരെ ജില്ലകളിൽ കടുത്ത ചൂട് ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം കണക്കാക്കുന്നത്

തൊഴിൽ സമയം പുനക്രമീകരിക്കാൻ ലേബർ കമ്മീഷണർ നിർദേശം നൽകിയിട്ടുണ്ട് നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം ശുദ്ധജലം കുടിക്കുകയും യാത്രാവേളകളിൽ വെള്ളം കരുതുകയും വേണം

ആശുപത്രികളിൽ ശുദ്ധജലം മരുന്ന് ഒആർഎസ് ഐസ്പാക്ക് എന്നിവ ഉറപ്പാക്കണം സ്കൂൾ അസംബ്ലികൾ ഡ്രിൽപിരീഡുകൾ എന്നിവ നിയന്ത്രിക്കണം വളർത്തു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആവശൃത്തിന് വെള്ളം ഉറപ്പാക്കണമെന്നും നിർദേശമുണ്ട്

ശുദ്ധജലം പാഴാ കുന്നത് തടയാൻ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും ജലസ്രോ തസുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും നിർദേശം നൽകിയി ട്ടുണ്ട്

ദേശീയതലത്തിൽ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല ഉദ്ഘാടനം തിരു വനന്തപുരത്തെ പട്ടം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീ സിലാണ്

അസംഘടിത കർഷക തൊഴിലാളി കൾ നിർമ്മാണ തൊഴിലാളികൾ ബിഡി റിക്ഷ തൊഴിലാളികൾ വീട്ടു ജോലിക്കാർ തെരുവ് കച്ചവടക്കാർ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ സ്വയം ചേരാവുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ബിജെപിയുടെ പരിവർത്തൻ യാത്രകൾക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ നാല് മേഖലകളായി തിരിച്ച് ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് പരിവർത്തന യാത്രകൾ സംഘടിപ്പിക്കുന്നത് വീണ്ടും വേണം മോദി ഭരണം എന്ന സന്ദേശത്തോടെയാണ് യാത്രകൾ ശബരിമലയടക്കം പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരിക്കും യാത്ര കാസർകോട് കുമ്പളയിൽ വൈകീട്ട് സംസ്ഥാന ജനറൽ സെക്ര ട്ടറി എം

രമേശിന് പതാക കൈമാറി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി

പത്മനാഭൻ യാത്ര ഉദ്ഘാടനം ചെയ്യും

രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന എറണാകുളം മേഖലാ യാത്ര കൊടുങ്ങല്ലൂരിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാ ടനം ചെയ്യും

ശോഭാ സുരേന്ദ്രനാണ് മധ്യമേഖലാ ജാഥ നയിക്കുന്നത് തിരുവനന്തപുരം മേഖലാ യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും

സുരേന്ദ്രനാണ് യാത്ര നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഐഎം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാന കമ്മറ്റിയും ചേരും സിറ്റിങ്ങ് എംപിമാരിൽ ചിലരെയെ ങ്കിലും നിലനിർത്തി മറ്റ് സീറ്റുകളിൽ പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാ നാണ് സാധ്യത സിപിഐ മാതൃകയിൽ എംഎൽഎമാരെ മത്സരിപ്പി ക്കുന്ന കാര്യവും സംസ്ഥാന നേതൃയോഗങ്ങൾ ചർച്ച ചെയ്തേക്കും കോൺഗ്രസ് കേരളാ കോൺഗ്രസ് മൂന്നാം ഉഭയകക്ഷി യോഗം ഇന്ന് ആലുവായിൽ ചേരും

ഇക്കാരൃത്തിൽ ഒത്തു തീർപ്പിന് വഴങ്ങില്ലെന്ന് പാർട്ടി വൈസ് ചെയർമാൻ ജോസ്

മാ ണിയും പി

ജോസഫും വൃക്തമാക്കിക്കഴിഞ്ഞു മുസ്ലീം ലീഗുമായും ആലുവായിൽ കോൺഗ്രസ് ഇന്ന് ചർച്ച നട ത്തും കേരളാ കോൺഗ്രസും മുസ്ലീം ലീഗും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഴയ ഫോർമുല തന്നെ തുടരാനാകു മെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചരൃത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ ജയിക്കേണ്ടതിന്റെ ആവശ്യകത ഘടക കക്ഷികളെ ബോധ്യപ്പെടു ത്താൻ കഴിയുമെന്നാണ് അവർ നൽകുന്ന സൂചന ഇന്നത്തെ ചർച്ച യോടെ യുഡിഎഫ് പട്ടികക്ക് രൂപം നൽകാനാകുമെന്നാണ് മുന്നണി യുടെ പ്രതീക്ഷ ഐകൃരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച എല്ലാവർക്കും ടൂറിസമെന്ന പ്രമേയം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് ഒറ്റപ്പെടലിന്റെ അനുഭവം ഇനി ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു കോവളം ടൂറിസം വികസനം സംസ്ഥാന ഗവൺമെന്റിന്റെ അഭി മാന പദ്ധതിയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

കനകക്കുന്ന് കൊട്ടാരത്തിൽ ഒമ്പതു കോടി രൂപ ചെലവ് വരുന്ന ഡിജിറ്റൽ മ്യൂസിയത്തിന്റെയും പൈതൃക സംരക്ഷണ പദ്ധതികളു ടെയും നിർമ്മാണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

ഭരണകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുഖൃമന്ത്രിയും ബില്ലിനെതിരെയായിട്ടും ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചതിൽ യോഗം ആശങ്കയറിയിച്ചു സേഫ് കേരളാ പദ്ധതിയിൽ കോഴിക്കോട്ട് സ്ഥാപിച്ച ട്രാഫിക് എൻഫോഴ്സമെന്റ് കൺട്രോൾ റൂം ഇന്ന് പ്രവർത്തനം ആരംഭിക്കും മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചേവായൂർ ടെസ്റ്റ് ഗ്രൌണ്ടിൽ സ്ഥാപിച്ച ഹെവി വെഹിക്കിൾ പരിശോധനാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നടത്തും ആദ്യഘട്ടത്തിൽ വാളയാർ മുതൽ വടക്കഞ്ചേരി വരെ ഭാഗത്തെ സംസ്ഥാന ദേശീയ പാതകളിലെ ദൃശൃങ്ങൾ ചേവായൂരിൽ ലഭ്യമാകും മദ്യനിരോധനമല്ല മദ്യവർജ്ജനമാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സംസ്ഥാന ലഹരി വർജ്ജന മിഷൻ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപ ത്രിയിൽ ആരംഭിച്ച ലഹരി വിമോചന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുക

ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് നാഗ്പൂരിൽ ഉച്ചക്ക് ഒന്നരക്കാണ് മത്സരം തുടങ്ങുന്നത് ആദ്യ ഏക ദിനത്തിൽ ആറുവിക്കറ്റിന് ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്തിരുന്നു

ശിവരാത്രിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്ര ങ്ങളിൽ പിതൃമോക്ഷ ചടങ്ങുകൾ തുടരുന്നു ആലുവ മണപ്പുറം തിരുനാവായ കോഴിക്കോട് ഉരുപുണ്യകാവ് തുടങ്ങി നിരവധി കേന്ദ്ര ങ്ങളിൽ ഉച്ചവരെ ചടങ്ങുകൾ തുടരും ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്

ധനകാര്യ സഹമന്ത്രിയായും ടെക്സ്റ്റൈൽസ് മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്

സംസ്കാരം ഇന്ന് ജന്മനാടായ വേണൂരിൽ നടത്തും സംസ്ഥാനത്തെ ചെറുകിട ജല വൈദ്യുത പദ്ധതികൾ നഷ്ട ത്തിലേക്ക് പോവുകയാണെന്ന് മന്ത്രി എം

ബാക്കി വൈദ്യുതി അധിക വില നൽകി പുറമെ നിന്ന് വാങ്ങുകയാണ് വൻകിട വൈദ്യുതി ഉൽപ്പാ ദന പദ്ധതികൾ നടപ്പാക്കിയാലെ ഈ രംഗത്ത് സ്വയം പര്യാപ്തത നേടാനാകൂവെന്ന് മന്ത്രി കണ്ണൂർ പിണറായിയിൽ പറഞ്ഞു

വ്യവസായ സ്ഥാപനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഉദ്യോ ഗസ്ഥരെ തൃപ്തിപ്പെടുത്താനുള്ളതാകരുതെന്ന് മന്ത്രി ടി

കൊച്ചിയിൽ ഫാക്ടറീസ് ആന്റ് ബോയി ലേഴ്സ് വകൂപ്പിന്റെ സുരക്ഷ അവാർഡും ഫാക്ടറി ഗ്രേഡിങ്ങ് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്ത് സംസാരിക്കുയായിരുന്നു മന്ത്രി